വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

പുറപ്പെടുവിച്ചു

ഈസ്റ്റ് ബംഗാളിനെ നേരിടും

ഉപ്പുവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സങ്കര ഊർജോൽപാദന പാർക്ക് പാൽ സംസ്കരണ പായ്ക്കിംഗ് പ്താന്റ് എന്നീ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പുനരുപയോഗ ഉൌർജോൽപാദന കേന്ദ്രത്തിനാണ് കച്ച് ജില്ലയിലെ വിഖാഗോട്ടിൽ പ്രധാനമന്ത്രി തുടക്കമിടുന്നത്

കച്ചിലെ മാന്ദ്വിയിലാണ് സമുദ്രജലത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റ് സ്ഥാപിക്കുന്നത്

കച്ചിലെ അഞ്ച്മാർ ഷർഹാദ് ഡയറിയിൽ പാൽ സംസ്ക്കരണത്തിനും പൊക്കിംഗിനുമായി പൂർണ്ണമായി ഓട്ടോമാറ്റിക്കായ ഒരു സ്കാന്റിനും പ്രധാനമന്ത്രി തറക്കല്ലിടും

മൂന്നു ലക്ഷത്തി നാൽപതിനായിരത്തോളം പേർ രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയൂന്നൂ

ഫൈസർ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഔഷ്ട് ഇന്ത്യ ഭാരത് ബയോട്ടെക്ക് എന്നീ സ്ഥാപനങ്ങൾ വാക്സിൻ അംഗീകാരത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട് വാക്സിന്റുകളുടെ അടിയന്തിര ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ അനുമുതി് നൽകിയാൽ ഉടൻ തന്നെ രാജ്യത്ത് വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും

വാക്സിൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തത്സമയം നിരീക്ഷിക്കുന്നതിനുമായി കോവിഡ് ഇന്റലിജൻസ് നെറ്റ്വർക്ക് എന്ന ഡിജിറ്റൽ സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ പേര് ചേർത്തിരിക്കുന്നവർക്ക് മുൻഗണന ക്രമത്തിലാവും വാക്സിൻ വിതരണം ചെയ്യുക

എല്ലാവർക്കൂർ വേണ്ട വാക്സിൻ അടുത്ത വർഷം പകുതിയ്ക്ക് ശേഷം ലഭ്യമാകുമെന്നും തുടർന്ന് ജനങ്ങൾക്ക് വാക്സിൻ സൌജന്യമായി നിൽകുമെന്നും സിങ്കപ്പൂർ പ്രധാനമന്ത്രി ലീ സിയൻ ലൂങ് അറിയിച്ചു

കഴിഞ്ഞ ആഴ്ച വാക്സിൻ വിതരണം ആരംഭിച്ച യുകെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ വാക്സിന് അംഗീകാരം നൽകിയിട്ടുണ്ട്

ആകെ ഏഴു കോടി മുപ്പത്തി രണ്ട് ലക്ഷത്തോളം പേർ രോഗബാധിതരായപ്പോൾ മൂന്നു ശതമാനം പേർക്ക് ജീവൻ നഷ്ടമായി

അമേരിക്ക ഫ്രാൻസ് ഇറ്റലി ബ്രസീൽ റഷ്യ എന്നിവിടങ്ങളിൽ രോഗബാധ രൂക്ഷമായി തുടരുന്നു

ഒരു വികസ്വര രാജൃത്തിന്റെ ആരോഗൃമേഖലയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി രാജ്യത്തിന്റെ ഡിജിറ്റൽ ആരോഗ്യ വൃവസ്ഥയ്ക്ക് ശക്തി പകർന്നതായാണ് വിലയിരുത്തൽ

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ തുടങ്ങി പ്രമുഖർ സർദാർ വല്ലഭായ് പട്ടേലിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സർദാർ വല്ലഭായി പട്ടേൽ കാണിച്ചുതന്ന പാത രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ എന്നും നമുക്ക് പ്രചോദനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ട്വീറ്റ് ചെയ്തു

രാജ്യത്തെ റെയിൽവേ റിക്ട്രൂട്ട്മെന്റ് ബോർഡുകൾ സംയുക്തമായാണ് മൂന്ന് ഘട്ടങ്ങളിലായി മർസ്രപ്പരീക്ഷ നടത്തുന്നത്

വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണമായും പാലിച്ചായിരിക്കും വോട്ടെണ്ണൽ

അതേ സമയം ഈസ്റ്റ് ബംഗാൾ പ്രോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനമാണ് നിൽക്കുന്നത്

മുരളീധരൻ സുഡാൻ വിദേശകാര്യ മന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ഒമർ ഗമാർ അൽദീൻ ഇസ്മായിലുമായി വിർചലായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ഉഭയകക്ഷി ബന്ധവും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി